ഒറ്റത്തവണ ഉപയോഗിക്കുന്നു പ്ലാ്സ്റ്റിക് ഒഴിവാക്കണമെന്നും ആരോഗ്യമുള്ള ഇന്ത്യയ്ക്കായി പുകയില ഉപേക്ഷിക്കണമെന്നും പ്രിധാനമന്ത്രി നരേന്ദ്രമോദി

ജെ

കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ

ദോഹയിൽ ലോക അത്ലറ്റിക് ചാമ്പൃൻഷിപ്പിൽ ഇന്ന് അഞ്ച് ഫൈനലുകൾ

പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പ്രിപ്പാടിയായ മൻ കീ ബാത്തിൽ ജനങ്ങളോട് സംവദിക്കുകയായിരുന്നു അദ്ദേഹം

ആരോഗ്യത്തോടൊപ്പം പരിസ്ഥിതി സംരക്ഷണത്തിനും പ്രാധാന്യം നൽകുന്ന പരിപാടികൾക്ക് തുടക്കം കുറിക്കാനും ശ്രീ

പ്രഭാതവ്യായാമത്തിന് നിരത്തിലിറങ്ങുന്നവർ ഓട്ടത്തിനു ശേഷമുള്ള വിശ്രമവേളയിൽ പ്ലാസ്റ്റിക്കും ചപ്പുചവറുകളും ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പെറുക്കി അവ ചവറുകുട്ടയിൽ ഇടുകയോ ശാസ്ത്രീയമായി സംസ്കരിക്കാൻ കൈമാറുകയോ ചെയ്യുന്ന പ്ലോഗിംഗ് രീതി പിന്തുടരാനും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു

രാജ്യമെമ്പാടും നടക്കുന്ന ഈ പരിപാടിയിൽ നാം രണ്ടു കിലോമീറ്റർ ജോഗിംഗ് ചെയ്യുകയും ഒപ്പംവഴിയിൽ കാണുന്ന പ്ലാസ്റ്റിക് മാലിനൃങ്ങൾ പെറുക്കിയെടുത്ത് മാലിന്യമുക്തിയുടെ കാരൃത്തിൽ ശ്രദ്ധ വർദ്ധിപ്പിക്കുകയുമാണ് വേണ്ടതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

വിനോദ സഞ്ചാര മേഖലയിൽ ഇന്തൃ കാതലായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നും സ്ച്ഛതയുമായി ബന്ധപ്പെട്ട പരിപാടികൾക്ക് ഇതിൽ പ്രധാന പങ്കുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

നമ്മുടെ ഉത്സവങ്ങൾ സാമൂഹ്യഐകൃത്തിന്റെ സംസ്കാരം കൊണ്ടുവരുന്നതായും പുതിയ ദൃഢനിശ്ചയങ്ങളോടെ ഉത്സവങ്ങൾ ആഘോഷിക്കാമെന്നും പ്രധാനമന്ത്രി മൻ കീ ബാത്തിൽ പറഞ്ഞു

യുവതലമുറ രാജൃത്തിന്റെ ഭാവിയാണ് ചെറുപ്പകാലത്ത് തന്നെ പുകയില ഉപേക്ഷിക്കാനുള്ള തീരുമാനം എടുക്കുന്നത് ആരോഗ്യമുള്ള ഇന്ത്യക്ക് സഹായകരമാകുമെന്ന് അദ്ദേഹം മൻ കീ ബാത്തിൽ പറഞ്ഞു വോയിസ് പുകയില ഉപയോഗംഉപേക്ഷിക്കാറ്റും ഇലക്ട്രോണിക് സിഗരറ്റിനെ ക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ വച്ചു പു്ലർത്താതിരിക്കാനും പ്രധാനമന്ത്രി രാജ്യത്തെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു

ഇലക്ട്രേ ടാണിക് ഉപകരണമായ ഇ സിഗററ്റിനുള്ളിൽ അടങ്ങിയിരിക്കുന്നതും നിക്കോട്ടിൻ തന്നെയാണെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു

വ്യാപകമായതിനാൽ എല്ലാവരും ഇതേപ്പറ്റി ബോധവാൻമാരാകണമെന്നും ശ്രീ

ഫിറ്റ് ഇന്ത്യാ മുന്നേറ്റത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം സാക്ഷാത്കരിക്കാൻ യുവാക്കൾ എല്ലാവിധ ലഹരിയിൽ നിന്നും മുക്തരാകണമെന്ന് ശ്രീ മോദി പറഞ്ഞു

ജെ പി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഇന്ന് വൈകിട്ട് ന്യൂഡൽഹിയിൽ യോഗം ചേരും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി

പി പ്രസിഡന്റ് അമിത് ഷാ മറ്റ് മുതിർന്ന പാർട്ടി നേതാക്കൾ എന്നിവർ യോഗത്തിൽ പ്പെട്ടുട്ടുക്കും

കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് ക്രമ്മിറ്റിയും നാളെ യോഗം ചേർന്ന് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ ്രൂപം നൽകും

കേന്ദ്ര പ്രതൃക്ഷ നികുതി ബോർഡ് ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കി

അടുത്ത വ്യാഴാഴ്ചവരെയാണ് താമസക്കാരെ ഒഴിപ്പിക്കാൻ സമയം അനുവദിച്ചിട്ടുള്ളത് ഫ്ളാറ്റുകൾ പൊളിക്കാൻ നിയന്ത്രിത സ്ഫോടനം ഉപയോഗിക്കുമെന്ന് ഇതിന്റെ ചുമതല വഹിക്കുന്ന മരട് നഗരസഭ സെക്രട്ടറി അറിയിച്ചു ഒഴിഞ്ഞുപോകുന്നവർക്കായി എറണാകുളം നഗരത്തിൽ അഞ്ഞൂറോളം ഫ്ളാറ്റുകൾ ജില്ലാ ഭരണകൂടം കണ്ടെത്തിയിട്ടുണ്ട് അതിനിടെ ഫ്ളാറ്റുടമകൾക്ക് നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ ഹൈക്കോടതി റിട്ടയേർഡ് ജഡ്ജ് കെ ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിൽ മൂന്നംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്

അഞ്ച് മത്സരങ്ങളുള്ള പരമ്പരയിൽ ഒരു വിജയവുമായി ഇന്ത്യ മുന്നിലാണ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം രണ്ടാമത്തെ മത്സരം മഴമൂലം റദ്ദാക്കിയിരുന്നു

ഡിസംബറിനുശേഷം രാജ്യത്തിന്റെ വികസനത്തിനായി വിപുലമായ പരിവർത്തനം നടത്തുമെന്നും പ്രസിഡന്റ് പറഞ്ഞു അച്ചടക്കമുള്ള തലമുയെ വാർത്തെടുക്കാനാണ് താൻ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

നിരവധി പേർക്ക് പരിക്കേറ്റു

എട്ട് മണിക്കൂർ നീണ്ട രക്ഷാ പ്രവർത്തനത്തിനൊടുവിലാണ് മേഖലയിൽ ഗതാഗതം പുനസ്ഥാപിച്ചത്

ജെ

അംഗവുമായ മുകുൾ റോയിയെ സി ബി

കൊൽക്കത്തയിലെ സി ബി ഐ ഓഫീസിൽ ചോദ്യം ചെയ്യൽ മൂന്ന് മണിക്കൂറോളം നിണ്ടു കേസിൽ താൻ നിരപരാധിയാണെന്ന് ചോദ്യം ചെയ്യലിനുശേഷം പുറത്തിറങ്ങിയ മുകുൾ റോയ് വാർത്താ ലേഖകരോട് പറഞ്ഞു

ചെന്നൈയിൽ വനിതാ സംരംഭകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം